മലയാളികൾ ബലിതർപ്പണം നടത്തുന്നു

ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായി മുഖ്യമന്ത്രി പിണറായിവിജയൻ

മുസ്ത്രീം വനിതകൾക്ക് സാമൂഹിക നീതിയും അന്തസ്സും ലിംഗ സമത്വവും ഉറപ്പു വരുത്താൻ ലക്ഷ്യമിടുന്നതാണ് മുത്തലാഖ് ബില്ലെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ പറഞ്ഞു ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാജ്യസഭ നിരാകരിച്ചു ബില്ല് നേരത്തെ ലോക്സഭ പാസാക്കിയിരുന്നു മുത്തലാഖ് ബിൽ പാസാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു സമൂഹ സമത്വവും ലിംഗനീതിയും ഉറപ്പാക്കുന്ന നടപടിയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ലക്ഷക്കണക്കിന് വരുന്ന മുസ്തീം സ്ത്രീകളുടെ വിജയമാണ് മുത്തലാഖ് ബിൽ പാർലമെന്റിൽ പാസായതോടെ കൈവന്നതെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണമൊ ജീവനാംശമോ ഉറപ്പാക്കുന്നതിന് ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാംനബി ആസാദ് ആരോപിച്ചു

കമ്പനി ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

നിലവിലുള്ള കുറഞ്ഞ വേതന നിയമം ശമ്പള നിയമം ബോണസ് നിയമം തുല്യുവേതന നിയമം എന്നിവയിലെ വകുപ്പുകളാണ് ഇതിലുള്ളത് തൊഴിലാളി പ്രൂർഘടനകൾ തൊഴിലുടമകൾ സംസ്ഥാന ഗവൺമെന്റ് എന്നിവരു ഉൾപ്പെട്ട ത്രിതല സമിതിയാണ് അടിസ്ഥാന ശമ്പള നിരക്ക് നിശ്ചയിക്കുന്നത്

ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുടെ രൂപവൽക്കരണം ബിൽ വിഭാവനം ചെയ്യുന്നു

കുത്തക കമ്പനികളുടെ സാമൂഹൃ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുക ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിന് കൂടുതൽ ചുമതല നിയമലംഘനങ്ങളുടെ പുനസംഘടന എന്നിവ ബില്ലിൽ ലക്ഷ്യമിടുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബഞ്ചൂൽ വിമാനത്താവളത്തിൽ ഗാമ്പിയൻ പ്രസിഡന്റ് അദാമ ബാരോയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി പരമ്പരാഗത രീതിയിൽ നൽകിയ വരവേൽപ്പിനെ തുടർന്ന് നഗരവീഥിയിൽ നിരയായി നിന്ന് ഗാമ്പിയൻ പൌരൻമാർ രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്തു

രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഗാമ്പിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും

പ്രവർത്തന മൂല്ധനം പൊതുവായ കമ്പനികാര്യ വായ്പകൾ റുപ്പീ ലോണുകളുടെ തിരിച്ചടവ് എന്നിവയ്ക്കുള്ള വായ്പാ ചട്ടങ്ങളിലാണ് ഇളവ് വരുത്തിയത് ഇതിനായി പുതുക്കിയ സർക്കുലറും ആർ

തുല്യതാ തത്വത്തിന് വിരുദ്ധമാണ് സംവരണമെന്നും അവസര സമത്വം ഉറപ്പാക്കുകയാണ് സംവരണ തത്വത്തിന്റെ ലക്ഷ്യമെന്നും ജസ്റ്റിസ് എസ്

സംവരണത്തിന്റെ ഏക മാനദണ്ഡം സാമ്പത്തിക സ്ഥിതി ആകാൻ കഴിയില്ലെന്നതാണ് ഹർജ്ജിക്കാരുടെ വാദം വിഷയത്തിൽ വാദം കേൾക്കൽ ഇന്നും തുടരും

നിയമനത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി അംഗീകാരം നൽകി

ജീവനക്കാരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് റെയിൽവെ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മുൻകാലങ്ങളിൽ നടത്തി വരുന്ന പദ്ധതി

അത്യാഹിത വിഭാഗം തീവ്രപരിചരണ വിഭാഗം അടിയന്തിര ശസ്ത്രക്രിയകൾ എന്നിവയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബിൽ ലോക്സഭ പാസാക്കിയതിനെതിരെ രാജ്യമൊട്ടാകെ വിവിധ ഡോക്ടർമാരുടെ സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനെ തുടർന്നാണിത്

അഫ്ഗാനിലെ കുർഗാൻ തേപ മേഖലയിലെ സുരക്ഷാ പോസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു സൈന്യം

പുലർച്ചെ രണ്ടരയോടെ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചവരെ നീളും ഒരു റിപ്പോർട്ട്

കർക്കടകത്തിലെ അമാവാസി ദിനമായ ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം തർപ്പണത്തിന് പേരുകേട്ട ആലുവ മണപ്പൂറം മലപ്പുറം തിരുനാവായ വയനാട് തിരുനെല്ലിയിലെ പാപനാശിനി തീർത്ഥം തിരുവനന്തപുരം തിരുവല്ലം എന്നിവിടങ്ങളിൽ ബലിയിടാനെത്തിയവരുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖം വർക്കല പാപനാശം അരുവിക്കര കൊല്ലം തിരുമുല്ലവാരം മുണ്ടയ്ക്കൽ പാപനാശം ചേലാമറ്റം നെട്ടൂർ പാലക്കാട്ടെ തിരുവിലാമല തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം കണ്ണൂർ പയ്യാമ്പലം കൊട്ടിയൂർ തൃച്ചംബരം എന്നിവിടങ്ങളിലും തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് കൊല്ലത്ത് തിരുമുല്ലവാരം കടപ്പുറവും ക്ഷേത്ര പരിസരവും വിശ്വാസികളാൽ നിറഞ്ഞു അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് അഷ്ടമുടിക്കായലും കല്പടയാറും അറബിക്കടലും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്

വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്

യാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് തീരദേശത്തെ പമ്പുകൾ തുറന്നിട്ടുണ്ട് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിനായി സംസ്ഥാനത്ത് എത്തിയ അനൃദേശങ്ങളിൽ നിന്നുള്ള എല്ലാ യാനങ്ങളും മടങ്ങിപോകണമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു

ന്യൂ ഡൽഹിയിൽ കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാരൃം അറിയിച്ചത് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ക്രമാതീതമായ ചെലവായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം

പാർലമെന്റ് സമ്മേള് കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരും ദേശീയപാതൃള്ട്യോഗ്സ്ഥരും കേരളത്തിൽ എത്തി നടപടി ക്രമങ്ങൾക്ക് അന്തിമരൂപും നൽകും